പ്രസ്ഥാനത്തിൽ അണി ചേരാൻ ജനുങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം

ലോകബാങ്ക് എഡിബി ്രസ്യംഘ്ം പരിശോധന തുടങ്ങി

പ്രവേശനം സംബന്ധിച്ച ഓർഡിനൻസ് സുപ്രീംകോടതി റദ്ദാക്കി

ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം പിടിക്കുന്നതിന് ഗവൺമെന്റ് മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു

പ്രധാനമന്ത്രി സ്വച്ഛതാ ശനിയാഴ്ച ആരംഭിക്കുന്ന സ്ച്ഛതാ സേവാ ജനകീയ പ്രസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ലോക ബാങ്ക് സംഘ പ്രളയക്കെടുതി വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ ലോക ബാങ്കിന്റെയും ഏഷ്യൻ വികസന ബാങ്കിന്റെയും പ്രത്യേകസംഘം കോഴിക്കോട് ആലപ്പുഴ ഇടുക്കി ജില്ലകൾ സന്ദർശിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ കലക്ടറുമായും ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ചനടത്തിയശേഷമായിരിക്കും സംഘം ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക

കൃഷിടൂറിസം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നേരിട്ട പ്രതിസന്ധി ഉദ്യോഗസ്ഥർ പരിഗണിക്കും

സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ധനമന്ത്രിയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം ചർച്ച നടത്തും

ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ മേലധികാരികൾ പങ്കെടുത്ത യോഗത്തിൽ സംഘം പങ്കെടുത്തു

അടിമാലി ടൌൺ കൂമ്പൻപാറ ഇരുട്ടു കാനം രണ്ടാം മൈൽ ഹെഡ് വർക്സ് മൂന്നാർ ഗവ

ഓർഡിനൻസ് കൊണ്ടു വന്ന ഗവൺമെന്റ് നടപടിക്കെതിരെ മെഡിക്കൽ കൌൺസിലാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്

ഇതിന്റെ ഭാഗമായാണ് ഗവൺമെന്റ് ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം സമാഹരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്

സൌദി എയർലൈൻസിന്റെ ജിദ്ദ റിയാദ് വിമാനങ്ങളാണ് ആദ്യം സർവ്വീസ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ റൺവേയുടെ പുനർനിർമ്മാണ പ്രവൃത്തികളെത്തുടർന്ന് രണ്ടര വർഷംമുമ്പ് നിർത്തിയ സർവീസുകളാണ് പുനരാരംഭിക്കുന്നത് നെടുമ്പാശേരിയിൽനിന്നുള്ള സൌദി എയർലൈൻസിന്റെ ജിദ്ദ റിയാദ് സർവീസുകളിൽ ഒന്ന് ആരിപ്പൂരിലേക്ക് മാറ്റാനും തീരുമാനമായി എയർ അറേബ്യ അടക്ക്മുള്ള വിദേശവിമാന കമ്പനികളും ഒക്ടോബറിൽ വലിയും എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് കരിപ്പൂരിൽനിന്ന് യാത്രക്ക് അനുമതി തേടിയിട്ടുണ്ട് എയർ ഇന്ത്യയുടെ ജിദ്ദ സർവീസും പുനരാരംഭിക്കുമെന്നാണ് സൂചന

ഇത് മലബാറിൽനിന്നുള്ള യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു

കെ ശൈലജ പകർച്ചവ്യാധികൾ കാരണം കൂട്ടമരണം ഉണ്ടാകുന്നത് തടയാൻ നമുക്ക് സാധിച്ചുവെന്ന് മന്ത്രി കെ

പ്രളയ ശേഷം വലിയ തോതിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുമെന്ന ഭയം ശക്തമായിരുന്നു കൊതുക് നശീകരണവും മാലിന്യ നിർമാർജ നവും ശക്തമായി തുടരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വ്യക്തികളും തദ്ദേശസ്ഥാപന ങ്ങളും മുൻകയ്യെടുക്കണമെന്നും അവർ പറഞ്ഞു

പ്രളയാനന്തര പ്രവർത്തനങ്ങൾ ഭാഗമായി കേരള പോലീസ് ്അസോസിയേഷന്റെയും പോലീസ് ഓഫീസേഴ്സ് അസ്യോസിയ്ഷൻ ജില്ലാ കമ്മറ്റിയുടെയും മൂന്നാർ ജനമൈത്രി പ്പോലീന്റെയും സഹകരണത്തോടെ ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ നിവാസകൾക്ക് ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു പരപ്പയാർ കുടിയിലെ നൂറോളം കുടുംബങ്ങൾക്കാണ് സഹായകിറ്റുകൾ നൽകിയത്

മന്ത്രി മാരായ ഇ പി ജയരാജന്റെയും കെ കെ ശൈലജയുടെയും നേ തൃത്വത്തിൽ ജില്ലയിൽ ഇന്നലെ എട്ട് കേന്ദ്രങ്ങളിലാണ് ക്യാമ്പ് ന ടത്തിയത്

ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ചീഫ് ഇലിക്ടറൽ ഓഫീസർ വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ച വിവർങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് വിശദമാക്കി

ശശി എം

എ ക്കെതിരെയുള്ള പീഡനാരോപണ വിഷയത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ എ

ബാലനെ മന്ത്രിസഭയിൽ മന്ത്രി നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ

എ ക്കെതിരെ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഉച്ചക്ക് ചെർപ്പുളശ്ശേരിയിൽ ബി ജെ

ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ രാജമലയിൽ ഉൾപ്പെടെ പൂവിട്ടു തുടങ്ങിയ കുറിഞ്ഞിച്ചെടികൾ കാണാനായി പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായി സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് രാജമലയ്ക്ക് പുറമേ മറയൂർ വട്ടവട പ്രദേശങ്ങളിലും കുറിഞ്ഞിച്ചെട്ടികൾ പൂവിട്ടു

പ്രതികൂല കാലവർഷം ഏൽപ്പിച്ച ആഘാതം മറികടന്ന് കുറിഞ്ഞിക്കാലത്തിനായി മൂന്നാർ ഒരുങ്ങി വിസിറ്റ് മൂന്നാർ സേവ് നീലക്കുറിഞ്ഞി എന്ന സന്ദേശമുയർത്തി കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഹോട്ടൽ ആന്റ് റിസോർട്ട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ ഇന്ന് കാർ റാലി സംഘടിപ്പിക്കുന്നുണ്ട് സഞ്ചാരികളുടെ ബാഹുല്യം കണക്കിലെടുത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ വേഗത്തിൽ ഒരുക്കാൻ കളക്ടർ ജീവൻബാബു ബന്ധപ്പെട്ട വകുപ്പു മേധാവികൾക്ക് നിർദ്ദേശം നൽകി

തീർത്ഥാടകർ എത്തുന്നത് കണക്കിലെടുത്ത് ന് പമ്പയിലും നിലയ്ക്കലും എല്ലാ താൽക്കാലിക സംവിധാനങ്ങളും പൂർത്തിയാക്കാൻ മന്ത്രി മാത്യു ടി തോമസ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി

കെട്ടിടങ്ങളുടെ പുനർ നിർമ്മാണത്തിനുളള പ്രൊപ്പോസൽ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിൽ നിന്നും വേണ്ട സഹായം ചെയ്യുമെന്നു ശ്രീ കണ്ണന്താനം പറഞ്ഞു

ആരോഗ്യ പരിശോധന പ്രാഥമിക ചികിത്സ മരുന്ന് വിതരണം നെബുലൈസേഷൻ തുടങ്ങിയ സേവനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും